സന്ദർശിച്ചു ദുരിത ബാധിതർക്ക് മുഖ്യമന്ത്രി എല്ലാ സഹായവും ഉറപ്പ് നൽകി

യോജനയിലെ ഗുണഭോക്താക്കൾക്ക് ശ്രീ

കാർട്ടറിൽ നീന്തൽ താരങ്ങളായ ശ്രീഹരി നടരാജും പിർധാവൽ ഘാടെയും ഫൈനലിന് യോഗൃത നേടി

ആലപ്പുഴ ജില്ലയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ സന്ദർശനം വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ക്യാമ്പിൽ കഴിയുന്നവർ വിശദീകരിച്ചു ആശങ്ക വേണ്ടെന്നും ഗവൺമെന്റ് എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്നും മുഖൃമന്ത്രി അറിയിച്ചു ശുചീകരണത്തിനും പുനർ നിർമ്മാണത്തിനും മുൻഗണനയാണ് നൽകിയിട്ടുള്ളത് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ആശങ്കയ്ക്ക് കാര്യമില്ല പ്രളയ ബാധിതരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കും

തുടർന്ന് കോഴഞ്ചരി എം

എം ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്ചാാസ ക്യാമ്പിലെത്തി ക്യാമ്പിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു വടക്കൻ പരവൂർ ചാലക്കുടി എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ കൃാമ്പുകളും മുഖൃമന്ത്രി സന്ദർശിക്കും

ശുചീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്

വോയിസ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി വാർഡുതല സ്കാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്

വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് വീടുകളിലെ വൈദ്യുത ജലവിതരണ സംവിധാനങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനാണ് പ്രധാന പരിഗണന നൽകിയിട്ടുള്ളത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പ്രളയക്കെടുതി നേരിട്ട സ്ഥലങ്ങളിലെ റേഷൻ കാർഡുടമകൾക്ക് കാർഡ് ഒന്നിന് അഞ്ച് കിലോഗ്രാം അരിവീതം സൌജന്യമായി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചു

വീടുകളിലേയ്ക്ക് മടങ്ങാനുള്ള സാഹചര്യമില്ലാതെ പതിമൂന്നര ലക്ഷം പേർ വിവിധ ദുരിതാശ്ചാസ കൃാമ്പുകളിലും ബന്ധുവീടുകളിലുമായി കഴിയുന്നുണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേരളത്തിൽ വ്യാപകമായുണ്ടായ വെള്ളപ്പൊക്കത്തെത്തുടർന്ന് ചില പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഹാജർ കുറവായിരുന്നു

നിലവിലുള്ള നയത്തിന്റെ ഭാഗമായാണ് ഇത്

തെക്കൻ ഗുജറാത്തിലെ വൽസാദ് ജില്ലയിലെ ഗ്രാമമായ ജൂജ്വയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി ചടങ്ങ് നടത്തിയത്

രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ന് ഇതു സംബന്ധിച്ച വിഞ്ജാപനം പുറപ്പെടുവിച്ചു

ഇരുരാജ്യങ്ങളുടെ സൈനൃങ്ങൾക്കിടയിലുള്ള തമ്മിലുള്ള അവിശ്വാസം ഇല്ലാതാക്കുക സഹകരണം ഊട്ടിയുറപ്പിക്കുക എന്നീ വിഷയങ്ങളാകും ഇരുനേതാക്കളുടെയും ചർച്ചകളിലെ പ്രധാന വിഷയം നാല് ദിവസത്തെ സന്ദർശനത്തിനാണ് ചൈനീസ് പ്രതിരോധ മന്ത്രി ഇന്ത്യയിലെത്തിയത്

ഡൽഹി അപ്പോളോ ആശുപത്രിയിൽ പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അന്ത്യം കൂടുതൽ വിവരങ്ങളുമായി സുവർണ

പത്രപ്രവർത്തകൻ പത്രാധിപർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രാജ്യസഭയിലും അംഗമായിട്ടുണ്ട്

അടിയന്തരാവസ്ഥ കാലത്ത് എഴുതിയ ലേഖനങ്ങളാണ് കുൽദീപ് നയ്യാരെ ഏറെ ശ്രദ്ധേയനാക്കിയത് അമേരിക്കയിലെ ഇല്ലിനോയിൽ നിന്നാണ് കുൽദീപ് നയ്യാർ പത്രപ്രവർത്തനത്തിൽ ബിരുദം നേടിയത് വരികൾക്കിടയിൽ എന്ന പ്രതിവാര ലേഖനം ലോകത്തിന്റെ വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുൽദീപ് നയ്യാരുടെ ദേഹവിയോഗത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം പ്രകടിപ്പിച്ചു മികച്ച പാർലമെന്റേറിയനും ഏഴുത്തുകാരനുമായിരുന്നു കുൽദീപ് നയ്യാറെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ടിറ്ററിൽ കുറിച്ചു ധീരനായ പ്രതിമാശാലിയായിരുന്നു കുൽദീപ് നയ്യാറെന്ന് ശ്രീ

സംസ്കാരം ലോധി റോഡ് ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് നടക്കും

പറ്റ്നയിൽ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുകേഷ് ആർ

മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉപമുഖ്യമന്ത്രി സുശീൽകുമാർ മോദി നിയമസഭാ സ്പീക്കർ വിജയ്കുമാർ ചൌധരി നിയമസഭാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു സത്യപാലിക്കിനെ ജമ്മുകാശ്മീർ ഗവർണറായി നിയമിച്ചതിനെ തുടർന്നാണ് ബീഹാറിൽ ഗവർണർ സ്ഥാനം ഒഴിവു വന്നത്

പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കസാഖ്സ്ഥാന്റെ ഡെനിസ് ഗാൻകിൻനെയാണ് അതാനു പരാജയപ്പെടുത്തിയത് ഇന്ന് ഉച്ച കഴിഞ്ഞ് നടക്കുന്ന മത്സരത്തിൽ ഇൻഡോനേഷ്യയുടെ റിയാതു എഗതയുമായി ഏറ്റുമുട്ടും ഇന്ത്യൻ നീന്തൽ താരങ്ങളായ ശ്രീഹരി നടരാജും വീർധവാൽ ഖാഡെയും ഫൈനലിൽ പ്രവേശിച്ചു

ജാഫ്നയുടെ കിഴക്കൻ മേഖലിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്

തമിഴ്നാട്ടുകാരായ മത്സൃത്തൊഴിലാളികളെ നാവികസേന കങ്കേശൻതുറ പോലീസിന് കൈമാറി

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നയിപ്പ് നൽകി

അന്തരിച്ച മുൻ പ്രധാനമന്ത്രി എ

വാജ്പേയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കൊണ്ടാണ് സാഹിത്യോത്സവം ആരംഭിച്ചത്